സംസ്ഥാനത്ത് വാരാന്തൃ്നീയ്ത്രണങ്ങൾ തുടരുന്നു പ്രതിദിന്മ ്രോമ്ബാധയിൽ വർധന രേഖപ്പെടുത്തിയ എന്റീണാകുളത്തും കോഴിക്കോടും പ്രീയ്ന്ത്രണങ്ങൾ കർശനമാക്കി

സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള കാത്തിരിപ്പിന് ഒരാഴ്ച കൂടി പശ്ചിമബംഗാളിൽ ഏഴാം ഘട്ട വോട്ടെടുപ്പ് നാളെ

എല്ലിൽ ഇന്ന് ചെന്നൈ ബംഗളുരുവിനെയും ഹൈദരാബാദ് ഡൽഹിയേയും നേരിടും

എല്ലാവരുടെയും ക്ഷമയെയും സഹിഷ്ണുതയെയും പരിമിതികളെയും പരീക്ഷിക്കുന്ന സമയത്താണ് ഇത്തവണ മൻ കി ബാത്തിലൂടെ സംവദിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മുംബൈയിൽ നിന്നുള്ള പ്രശസ്ത ഡോക്ടർ ശശാങ്ക് ജോഷി ശ്രീനഗറിൽ നിന്നുള്ള ഡോക്ടർ നവീദ് നസീർ ഷാ റായ്പൂരിലെ ഡോ

അംബേദ്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്ന നഴ്സ് ശ്രീമതി ഭാവ്ന ധ്രുപ് ബാംഗ്ലൂരിൽ നിന്നും സിസ്റ്റർ സുരേഖ ആംബുലൻസ് ഡ്രൈവറായ ശ്രീ പ്രേം വർമ്മ എന്നിവർ തത്സമയം മാന് കി ബാത്തിലൂടെ പ്രധാനമന്ത്രിയുമായി വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു

വെല്ലുവിളി നിറഞ്ഞ സമയത്ത് സന്നദ്ധസംഘടനകൾ മുന്നോട്ടുവന്നു മറ്റുള്ളവരെ സഹായിക്കാൻ തങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി വ്യക്തമാക്കി

പൊലീസ് വ്യാപക പരിശോധന നടത്തുന്നുണ്ട്

അനാവശ്യ യാത്രകൾ തടയുന്നതിന്റെ ഭാഗമായി കാരണം ബോധ്യപ്പെടുത്തുന്ന രേഖയോ സ്വയം തയാറാക്കിയ സത്യപ്രസ്താവനയോ നിർബന്ധമാക്കിയിട്ടുണ്ട്

എസ് ആർ ടി

ബി

വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ആവശ്യം യോഗം ചർച്ചു

യോഗതീരുമാനം കൂടി പരിഗണിച്ചായിരിക്കും മെയ് രണ്ടിന് ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ഹർജികളിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാവുക

അധ്യാപകരെയാണ് കൺട്രോൾ റൂം സേവനത്തിനായി നിയോഗിച്ചിട്ടുള്ളത്

വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും

വർഷത്തിലൊരിക്കൽ നടത്തുന്ന അങ്ങാടിവേലയിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിരയോട്ടത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്നു പൊലീസ് വൃക്തമാക്കി